ശക്തവുമായ ഗവൺമെന്റ് വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ക്രിമിനൽ അന്വേഷണ വിഭാഗത്തിലേക്ക് സ്ഥലംമാറ്റി

സംവിധാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിങ് ഉദ്ഘാടനം ചെയ്തു

കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയോട് അടിയ്ന്ത്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു

എഫ് ജവാന്മാരുടെ വാർഗ്ഗനവ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തിയതിന് പ്പിന്നീൽ പ്രവർത്തിച്ച ജെയ്ഷെ മൊഹമ്മദ് എന്ന ഭീകര സംഘടനിയുട്ടെ ഉന്നത നേതൃത്വത്തെ ഉന്മൂലനം ചെയ്തതായി സൈന്യൂട് പ്പെളിപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

ശ്രീനഗറിൽ സൈനിക ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ലഫ്റ്റനന്റ് ജനറൽ കെ

കഴിഞ്ഞ് ദിവസം നടന്ന ഭീകര വിരുദ്ധ നടപടി സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ

ആർ

പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയാണിത്

എഫ് ജവാന്മാർക്ക് നേരെയുളള ആക്രമണം നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് ഇതിന് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാരസംഘടനയായ ഐ

ചാവേറാക്രമണം നടത്തിയതിന് പിന്നിലുളളവരെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് പരിക്കേറ്റ സി

എഫ് ജവാന്മാർ സുഖം പ്രാപിച്ച് വരികയാണെന്നും ലഫ്റ്റനന്റ് ജനറൽ ധില്ലൻ പറഞ്ഞു

കാശ്മീരിൽ ഭീകരപ്രവർത്തനത്തിനായി തോക്കെടുക്കുന്നവരെ ഉന്മൂലനം ചെയ്യുമെന്നും ലഫ്റ്റനന്റ് ജനറൽ ധില്ലൻ മുന്നറിയിപ്പ് നൽകി

മികച്ച ഭൂരിപക്ഷമുള്ളതുകൊണ്ടാണ് എൻ

എ ഗവൺമെന്റ രാജ്യത്തിന്റെ മൊത്തത്തിലുളള വിക്സ്ഠന്ം സാധ്യമാക്കുന്നത് പുതിയ ഇന്ത്യയുടെ നിർമ്മാണ് ഉത്തർപ്രദേശിൽ നിന്ന് ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി ്പ്റഞ്ഞു വാരണാസിയിലെ ഔദ് ഗ്രാമത്തിൽ പൊതുസമ്മേള്നത്തെ അഭിസംബോധന ചെയ്യവേയാണ് അദ്ദേഹം ശ്രജ്ങ്ങനെ പറഞ്ഞത് നിരവധി റെയിൽ റോഡ് വൈദ്യുതീകരണം പ്പ്ദ്ധതികൾ പൂർത്തിയാക്കിക്കഴിഞ്ഞു

ബുളളറ്റ് ട്രെയിൻ നിർമ്മിച്ച് വിജയകരമായി ഓടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സന്ത്ഗുരു രവിദാസിന്റെ ജന്മസ്ഥലത്തെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്തി

രണ്ട് ആശുപത്രികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു

ഐ

ക്രമാസമാധാന ചുമതലയുളള എ

ജി പി അനുജ് ശർമ്മയാണ് പകരക്കാരൻ ശാരദാ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഷില്ലോംഗിൽ വച്ച് സി ബി ഐ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് രാജീവ് കുമാർ

സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അടിയന്തിര പ്രതികരണ പിന്തുണ സംവിധാനം ഇതിൽ ഉൾപ്പെടുന്നു

അടിയന്തിര പ്രതികരണ കേന്ദ്രങ്ങളെ ജില്ലാ കേന്ദ്രങ്ങളുമായും അടിയന്തിര പ്രതികരണ വാഹനങ്ങളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്

ജനങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് നിശാനിയമത്തിൽ ഇളവ് വരുത്തിയതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു

സദാശിവം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയെതുടർന്നാണ് ഗവർണർ വിഷയത്തിൽ ഇടപെട്ടത് കാസർകോട് ഇരട്ടക്കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചും ശ്രീ

കഴിഞ്ഞ ക്യൂട്ടുമാസമായി നോർത്ത് എ ഡി ജി

യെ നിയമിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ന്തോവ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഗവർണർ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് തേടിയത് അതിനിടെ കാസ്സർകോട്ട് ഇരട്ടക്കൊലപാതക കേസിൽ സിപിഎം പ്രാദേശിക നേരിാപ്പ് ഉൾപ്പെടെ ഏഴ് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു

വ്രതശുദ്ധിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാലയിടാനെത്തുന്ന ഭക്തലക്ഷങ്ങളെ വരവേൽക്കാൻ നഗരം ഒരുങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവർ ഇതിനകം തന്നെ ക്ഷേത്രപരിസരത്ത് അടുപ്പ് കൂട്ടിക്കഴിഞ്ഞു

ജാതിയുടേയോ മതത്തിന്റെയോ പേരിൽ യാതൊരു വിവേചനവും പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയും ഗോത്രവിഭാഗങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി

മുന്ന് വർഷത്തിലധികമായി ഒരേ സ്ഥലത്ത് തുടരുന്നു് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുളള തെരഞ്ഞെടുപ്പ് കിമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി

ഭീകരത ഇന്ത്യയെ മാത്രമല്ല ബാധിക്കുന്നത് ഇസ്രായ്ലും ഭീകരതയ്ക്കിരയാണ് അതിനാലാണ് ഇന്ത്യയെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതെന്ന് പുതുതായി ചുമതലയേറ്റ ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി ഡോ

ഭീകരതയെ നേരിടാൻ അറിവും സാങ്കേതികതയും നൽകി ഇന്ത്യയെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

റോൺ മൽക പറഞ്ഞു

നാളെ ആരംഭിക്കുന്ന എയ്റോ ഇന്ത്യ പ്രദർശനത്തിനായി പരിശീലനം നടത്തുകയായിരുന്ന രണ്ട് വിമാനങ്ങളാണ് കൂട്ടിയിടിച്ചത്

മറ്റ് രണ്ട് പൈലറ്റുമാർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു ഒരു നാട്ടുകാരനും പരിക്കേറ്റു

വിവരമറിഞ്ഞ് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അപകട സ്ഥലം സന്ദർശിച്ചു

കെയും ബി ജെ

കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയലും അണ്ണാ ഡി

കെ നേതാക്കളായ ഒ പനീർസെൽവവും എടപ്പാളി കെ പളനിസ്വാമിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം

ജെ പി അഞ്ച് സീറ്റിൽ മത്സരിക്കും

ജെ പി പിന്തുണയ്ക്കും

എം

എം കെ നേതാക്കളായ ഒ പനീർശെൽവം എടപ്പാടി പളനിസ്വാമി എന്നിവർ പി

കെ സ്ഥാപകൻ ഡോ എസ് രാമദാസ് പാർട്ടി അദ്ധ്യക്ഷൻ ജി

മണി എന്നിവരുമായി ഇക്കാര്യത്തിൽ ധാരണയില്ലൊപ്പുവച്ചു

എം കെയ്ക്ക് ഏഴ് ലോകസഭാ സീറ്റുകൾ വിട്ടു നൽകും

കെ ഡി

ഉത്തരാഖണ്ഡിലെ ഹരിദാറിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്

സാങ്കേതിക വിദ്യയിൽ് അറിവ് ഉളളവരും ഇല്ലാത്തവരും തമ്മിലുളള വിടവ് നികത്തുന്നതിനുളള ശ്രമമാണ് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ദക്ഷിണകൊറിയൻ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച് നടത്തും